പ്രധാനമന്ത്രി ന്നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും ജമ്മു കശ്മീരിന്റെ പ്രത്യേക പിദ്വി പിൻവലിച്ചതും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കിയതും ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖൃമന്ത്രി പിണറായി വിജയനും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രി മാരും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരി ക്കും വടക്കൻ ജില്ലകളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത

ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റന്നാൾ മുതൽ ആറ് ശനിയാഴ്ചകളിൽ എലിപ്പനിക്കെതിരെ ഡോക്സി ഡേ ആചരിക്കുമെന്ന് മന്ത്രി കെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും ജമ്മു കശ്മീർ വിഷയ മുൾപ്പെടെ സുപ്രധാന കാര്യങ്ങൾ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രതിപാദിച്ചേക്കുമെന്നാണ് സൂചന തുടർച്ചയായ ആറാം തവ ണയാണ് സ്വാതന്ത്ര്യദിനത്തിൽ നരേന്ദ്ര മോദി രാജ്യത്തെ അഭി സംബോധന ചെയ്യുന്നത്

സി കേഡറ്റുകളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാ നെത്തും കനത്ത സുരക്ഷയാണ് പ്രധാന ചടങ്ങ് നടക്കുന്ന ചെങ്കോ ട്ടയിലും ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലും ഒരുക്കിയിരിക്കു ന്നത് മുഖം തിരിച്ചറിയാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ സജ്ജ മാക്കിയ കൃാമറകൾ ആദ്യമായി ഡൽഹി പൊലീസ് സുരക്ഷ ക്കായി ഉപയോഗിക്കുന്നുണ്ട് ബഹുതല സുരക്ഷാ സംവിധാനത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്

അഞ്ഞൂറോളം സി സി

വി ക്യാമ റകളും ഒരുക്കിയിട്ടുണ്ട് ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതും സംസ്ഥാ നത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയതും ജമ്മു കശ്മീരിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിപ്രായപ്പെട്ടു രാജ്യത്തെ ്ഇതര ഭാഗ ങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അതേ അവകാശങ്ങളും അധികാരങ്ങളും സൌകര്യങ്ങളും ്അനുഭവിക്കാൻ ഇതുവഴി ജമ്മു കശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് കഴിയു മെന്നും രാഷ്ട്രപതി പറഞ്ഞു സ്വാതന്ത്ര്യദിന തലേന്ന് രാഷ്ട്ര ത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി

ഗാന്ധിജി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഇന്ത്യയിൽനിന്ന് തികച്ചും ഭിന്നമാണ് സമകാലീന ഇന്ത്യയെങ്കിലും അദ്ദേഹ ത്തിന്റെ പ്രസക്തി ഇപ്പോഴും വളരെ വലുതാണെന്ന് രാഷ്ട്ര പതി പറഞ്ഞു രാജ്യത്തിന്റെ ചരിത്രവും ഭാഗധേയവും പൈതൃകവും ഭാവിയും സഹവർത്തിത്വത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ആഘോഷമാണ്

സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി കൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും

ജില്ലകളിൽ മന്ത്രിമാർ ദേശീയ പ്താക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും കൊല്ലത്ത് കെ രാജുവും പത്തനംതിട്ടയിൽ ജെ മേഴ്സിക്കുട്ടിയമ്മയും ആലപ്പുഴയിൽ ജി സുധാകരനും കോട്ടയത്ത് പി തിലോത്തമനും ഇടുക്കി യിൽ എം

എറണാകുളത്ത് വി എസ് സുനിൽ കുമാറും തൃശൂരിൽ എ സി മൊയ്തീനും പാലക്കാട്ട് കെ കൃഷ്ണൻകുട്ടിയും മല പ്പുറത്ത് കെ ടി ജലീലും അഭിവാദ്യം സ്വീകരിക്കും കോഴിക്കോട്ട് എ കെ ശശീന്ദ്രനും വയനാട്ടിൽ കെ

ശൈലജയും കണ്ണൂരിൽ ഇ പി ജയരാജനും കാസർകോട് ഇ ചന്ദ്രശേഖരനും പങ്കെടുക്കും

കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള മലപ്പുറം കോഴി ക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപി ച്ചു

എന്നാൽ അതിതീവ്ര മഴയുടെ സാധ്യതാ മുന്നറി യിപ്പായ റെഡ് അലർട്ട് ഇന്ന് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല

കനത്ത മഴയെത്തുടർന്ന് നെയ്യാർഡാമും അരുവിക്കര ഡാമും തുറന്നു

ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് മലപ്പുറ ത്താണ്

വെള്ളമിറങ്ങിയതിനെത്തുടർന്ന് വിവിധ ജില്ലകളിൽ ഏതാനും ക്യാമ്പുകൾ പിരിച്ചുവിട്ട് ആളുകൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി

പ്രളയം സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയതിന് അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തു

മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽനിന്നും ലഭിച്ച രണ്ട് മൃത ദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പ്രളയജലവുമായി സമ്പർക്കമുള്ളവർക്ക് എലിപ്പനി ഉണ്ടാ കാൻ സാധൃതയുള്ളതിനാൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വ ത്തിൽ മറ്റന്നാൾ മുതൽ ആറ് ശനിയാഴ്ചകളിൽ ഡോക്സി ഡേ ആയി ആചരിക്കുമെന്ന് മന്ത്രി കെ

പോളിയോ വാക്സിൻ ക്യാമ്പയിൻ പോലെ വിപുലമായ ക്യാമ്പയിനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു പ്രളയബാധിത ജില്ലകളിലെ ആശുപത്രികൾ റിലീഫ് ക്യാമ്പു കൾ തിരഞ്ഞെടുക്കപ്പെട്ട പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം ഡോക്സി ബൂത്തുകൾ സ്ഥാപിച്ചാണ് ഡോക്സി സൈക്ലിൻ ഗുളികകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നത് പ്രകൃതിക്ഷോഭത്തിൽ കിടപ്പാടങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെ ട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ ഭൂമി കണ്ടെത്തു ന്നതിന് നടപടിയുണ്ടാകുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാഞ്ഞ ങ്ങാട്ട് പറഞ്ഞു കടന്നക്കാട് കാർഷിക കോളേജിലെ ദുരിതാ ശ്വാസ സഹായ സ്വീകരണ കേന്ദ്രങ്ങൾ സ്ന്ദർശിച്ചശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറുവർഷത്തിലൊരി ക്കൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് പ്രകൃതി ദുരന്തമാണ് തുടർച്ചയായ വർഷങ്ങളിൽ സംഭവിച്ചതെന്നും അദ്ദേഹം പറ ഞ്ഞു വയനാട് മേപ്പാടി പുത്തുമല ദുരന്തസ്ഥലത്ത് മണ്ണിനടി യിൽപ്പെട്ടവർക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കി മണ്ണുമാന്തി യന്ത്രങ്ങളെത്തിച്ചാണ് തിരച്ചിൽ ഇന്നുമുതൽ കൂടുതൽ ആധു നിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിച്ചേക്കും

കോട്ട ക്കുന്ന് പാർക്കിന്റെ പടിഞ്ഞാറെ ഭാഗം കുത്തനെ വലിയ മൺതി ട്ടയാണ്

പെരിയാർ ചാലക്കുടിപ്പുഴ എന്നിവയിൽ ജലനിരപ്പ് നേരിയ തോതിൽ വർദ്ധിച്ചു

ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിലും ദുരിതാശ്ചാസ കൃാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കും കോട്ടയം ജില്ലയിൽ മഴക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതി തുടരുന്നു

ഉരുൾപ്പൊട്ടലിലും മഴകെടുതിയിലും ജീവനും സ്വത്ത് വകകളും നഷ്ടപ്പെട്ട് ദുരിതാശ്ചാസം ക്യാംപുകളിൽ കഴിയുന്നവർക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ച് ധന സഹായം തികച്ചും അപര്യാപ്തമാണെന്ന് ബി

സംസ്ഥാന പ്രസിഡന്റ് പി

കൂടുതൽ ധനസഹായമായി അനുവദിക്കണമെന്നും രക്ഷാ പ്രവർത്തനങ്ങളുടെ വേഗം ത്വരിതപ്പെടുത്തണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി

ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ സെഞ്ചറിയും ശ്രേയസ് അയ്യറിന്റെ അർദ്ധ സെഞ്ചറിയുമാണ് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത് വെസ്റ്റിൻഡീസിനെതിരായ ഇന്ത്യയുടെ തുടർച്ചയായ ഒമ്പതാം വിജയമാണിത് അന്തരിച്ച കെ

സി ജനറൽ സെക്രട്ടറി പി

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ

സി ജനറൽ സെക്രട്ടറിമാരായ ഉമ്മൻചാണ്ടി കെ സി വേണുഗോ പാൽ തുടങ്ങിയ നേതാക്കൾ ആദരാഞ്ജലി അർപ്പിച്ചു

രാമകൃഷ്ണൻ നിർഭയനായ പോരാളി ആയിരുന്നുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു

കെ ബാലകൃഷ്ണൻ നിര്യാതനാ യി

ധർമ്മടത്തെ സ്വരാജ് ആണ് മരിച്ചത് സംസ്ഥാന മത്സ്യത്തൊഴിലാളി കടാശ്ചാസ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് പി

പ്രളയത്തെത്തുടർന്ന് തകരാറിലായ കോഴിക്കോട്ടെ റോഡു കളും കെട്ടിടങ്ങളും പുനർ നിർമ്മിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേക ധനസഹായം നൽകണമെന്ന് കോഴി ക്കോട് കോർപ്പറേഷൻ കൌൺസിലിന്റെ അടിയന്തര യോഗം ആവശ്യപ്പെട്ടു